ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിവിധ മതനേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി

ജെ

മുംബൈയിൽ നടന്ന കോർകമ്മിറ്റി യോഗത്തിലാണ് ഗവൺമെന്റ് രൂപീകരിക്കേ ിതല്ലെന്ന തീരുമാനം എടുത്തത് ഇന്നലെ ഗവർണ്ണർ ഭഗത് സിംഗ് കോഷ്യാരി എറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി യെ ഗവൺമെന്റ് രൂപീകരിക്കാനായി ക്ഷണിച്ചതിനെ തുടർന്നാണ് യോഗം ചേർന്നത്

ജെ

മസ്ജിദ് നിർമ്മിക്കാനായി നഗരത്തിൽ അനുയോജ്യമായ അഞ്ച് ഏക്കർ ഭൂമി നൽകണമെന്നും സൂപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചു ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് അയോന് കേസ് സംബന്ധിച്ച സുപ്രീംകോടതിവിധിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊ ് പറഞ്ഞു വിധിയെ വിവിധ ജനവിഭാഗങ്ങൾ സ്വാഗതം ചെയ്ത രീതി ഇന്തൃയുടെ പ്രാചീന സംസ്കാരത്തിന്റേയും പാരമ്പര്യത്തിന്റേയും മഹത്വത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിന്റെ ശക്തിയും ജനാധിപത്യ സ്വഭാവവും വിളിച്ചോതുന്നതാണ് വിധിയെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്റെ യോഗി ആദിത്യനാഥ് പറഞ്ഞു ശ്രമങ്ങൾ നീതീകരിക്കപ്പെട്ടുവെന്നും അതിയായ സന്തോഷം തോന്നുന്നുവെന്നും മുതിർന്ന ബി

പി നേതാവ്എൽ

രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായ സുപ്രീംകോടതി വിധിയെ മാനിക്കുന്നതായി കോൺഗ്രസ്സ് പാർട്ടി വ്യക്തമാക്കി പതിറ്റാ ുകളായി നിലനിൽക്കുന്ന തർക്കത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ഹിന്ദുക്കളുടേയും മുസ്തീംങ്ങളുടേയും വിജയമാണെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം പറഞ്ഞു

വിധി തങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും അതിനെ പോദൃം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഉത്തർപ്രദേശ് സുന്നി പ്സെൻട്രൽ വഖബ്ബോർഡ് പറഞ്ഞു

മുസ്ലീംസമൂഹം കോടതിവിധിയിൽ സന്തുഷ്ടരാണെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അദ്ധ്യക്ഷൻ ഖയാറൂൾ ഹസ്സൻ റിസ്വി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കിഴക്കൻ പർഗനാസ് ജില്ലയിലും മിഡ്നാപ്പൂർ ഹൌറ ഹൂഗ്ലി കൊൽക്കത്ത എന്നിവിടങ്ങളിൽ വീടുകൾക്കും മറ്റും വൻ നാശനഷ്ടങ്ങളു ായി കനത്ത മഴയെത്തുടർന്ന് നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭൃന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി മമത ബാനർജിയുമായി ഫോണിൽ സംസാരിച്ച് സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഒഡീഷയിൽ നിരവധി മേഖലകളിൽ ഇനിയും സാധാരണ സ്ഥിതി വീ െ ടുക്കാനായിട്ടില്ല അതേസമയം ബുൾബുൾ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറിയതായി അധികൃതർ അറിയിച്ചു

അയോധ്യാവിധിയുടെ പശ്ചാത്തലത്തിൽചിലസംഘടനകൾ നടത്താനിരുന്ന ഘോഷയാത്രകൾ രാഷ്ട്രപതിരാംനാഥ്കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവുംപ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് നബിദിനാശംസകൾ നേർന്നു

ജില്ലയുടെ വിജര ല്യുദരമേഖലയിൽ ഭീകരവാദികൾ ഒളിച്ചിരിപ്പു െ ന്ന വ്യക്തമായ വിവരത്തെത്തുടർന്ന് സൈന്യവും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും സി

എഫ് ഉം സ്ഥലത്ത് ഉതരച്ചിൽ നടത്തവെ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു

എ നവ്ജ്യോത് സിംഗ് സിദ്ദു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പ്രശംസിച്ചതിനുമെതിരെ ബി ജെ

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു വോയിസ് പാകിസ്ഥാനെ കുറിച്ചും ഇമ്രാൻഖാനെ കുറിച്ചും പ്രശംസാ ഗീതങ്ങൾ ചൊരിയുന്ന സിദ്ദു ഇന്ത്യയെ മോശമായാണ് ചിത്രീകരിക്കുന്നതെന്ന് ബി ജെ

തങ്ങളോട് ഏറെ അടുപ്പമുള്ള സിദ്ദുവിന്റെ പാകിസ്ഥാനിലെ പെരുമാറ്റത്തെക്കുറിച്ച് മറുപടി പറയാൻ സോണിയഗാന്ധിയും രാഹുൽഗാന്ധിയും ബാദ്ധ്യസ്ഥരാണെന്ന് ശ്രീ

ഇന്ത്യക്കാർക്കുവേ ി പാകിസ്ഥാൻ ഗവൺമെന്റ് ചെയ്ത ഒരു ഔദാര്യമാണ് കർത്താർപൂർ ഇടനാഴി തുറന്നു തന്നതെന്ന് സിദ്ദു വിശേഷിപ്പിച്ചത് തീർത്തും പരിഹാസ്യമാണെന്ന് ശ്രീ

കോൺഗ്രസിന്റെ ഉടമസ്ഥതയിലുള്ള നാഷണൽ ഹെറാൾഡിൽ ഇന്ത്യൻ സുപ്രീം കോടതിയെ പാകിസ്ഥാന്റെ സുപ്രീം കോടതിയോട്ട് താരതമ്യപ്പെടുത്തിക്കൊ ുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത് ഖേദകരമാണെന്ന് ബി ജെ

അയോധ്യ വിധി എന്തുകൊ ് പാകിസ്ഥാനിലെ സുപ്രീം കോടതിയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ശീർഷകത്തിൽ നാഷണൽ ഹെറാൾഡിൽ പ്രസിദ്ധീകരിച്ച ലേഖനം അങ്ങേയറ്റും അപലപനീയമാണെന്ന് ശ്രീ

പ്രസ്തുത ലേഖനത്തിലൂടെ സൂപ്പീം കോടതി ആർ എസ് എസിനും ബി ജെ

യ്ക്കും അനുകൂലമായ വിധിയാണ് അയോധ്യ കേസിൽ നൽകിയതെന്ന് കോൺഗ്രസ് പാർട്ടി പറയാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ

ഇന്ത്യൻ നീതിന്ന്യായ വ്യവസ്ഥയോളം സുതാര്യവും ജനാധിപത്യപരവുമായ മറ്റൊരു നീതിന്ന്യായ സംവിധാനം ലോകത്തൊരിടത്തും തന്നെ നിലവിലില്ല എന്നും ശ്രീ സാംപിത് പാത്ര കൂട്ടിച്ചേർത്തു

ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആക്ടിംഗ് പ്രധാനമന്ത്രി പെട്രോസാങ്ഷെ വീ ും തെരഞ്ഞെടുപ്പിന് ഉത്തരവിടുകയായിരുന്നു നാലുവർഷത്തിനുള്ളിൽ രാജ്യത്ത് നടക്കുന്ന നാലാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണിത്